ജനത കർഫ്യൂവിന്റെ ഭാഗമായി രാജ്യത്തെ ട്രെയിൻ സർവ്വീസുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി പത്ത് മണിവരെ നിർത്തിവയ്ക്കും

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത് മഹാരാഷ്ട്രയിൽ

കേന്ദ്രം നിജപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ

ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെയെത്തിക്കാൻ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ഇന്ന് റോമിലേക്ക് പുറപ്പെടും

എസ് സി

സർവ്വീസ് ഇന്റർവ്യൂകൾ ഏപ്രിൽ മൂന്ന് വരെ നിർത്തിവച്ചു

നാളെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്ത ജനത കർഫ്യൂ ഞായറാഴ്ച രാവിലെ ഏഴ് മണിമുതൽ രാത്രി ഒമ്പത് മണിവരെ വീടുകളിൽ തന്നെ കഴിയാനാണ് ആഹ്വാനം ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയമാക്കിയാൽ കൊറോണ വൈറസിനെതിരെയുള്ള വലിയ ജനമുന്നേറ്റമാകും അതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കൊറോണ വ്യാപനത്തിന്റെ നിലവിലെ ഘട്ടത്തിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടത് അനിവാരൃമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വൈറസ് വ്യാപനം പ്രതിരോധിക്കുന്നതിൽ അടുത്ത മൂന്ന് നാല് ആഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗപ്രതിരോധത്തിനായി സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ആരോഗൃ പ്രവർത്തകർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ

വിലക്കയറ്റവും കരിഞ്ചന്തയും ഒഴിവാക്കാൻ മുഖ്യമന്ത്രിമാർ നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ നാളെ പുലർച്ചെ നാല് മണിയോടെ സർവീസ് നിർത്തും നാളെ രാവിലെ ഏഴ് മണിക്ക് സർവ്വീസ് നടത്തുന്ന പാസഞ്ചർ ട്രെയിനുകൾ ലക്ഷ്യ സ്ഥാനത്തെത്തിയ ശേഷം സർവ്വീസ് അവസാനിപ്പിക്കും

രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്

ഉത്തർപ്രദേശിൽ ഐസൊലേഷൻ വാർഡുകളുടെ എണ്ണം വേത്രയുന്നെ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു

മരണസംഖ്യയിൽ ഇറ്റലി ഇന്നലെ തന്നെ ചൈനയെ മറികടന്നിരുന്നു

ലോകത്തെ ആകെ മരണത്തിന്റെ മൂന്നിലൊന്നും ഇറ്റലിയിലാണ് റിപ്പോർട്ട് ചെയ്തത്

ബ്രിട്ടൻ കടുത്ത നിയന്ത്രണങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്

പ്രതിരോധ നടപടികളിൽ സാർക്ക് രാജ്യങ്ങൾ ഒരുമിച്ച് മുന്നേറാൻ ആഹ്വാനം ചെയ്ത്ത് ഇന്ത്യയുടെ നിലപാടിനെ അമേരിക്കൻ പ്രതിരോധ സ്പ്രിക്ട്ടറി മാർക്ക് എസ്പർ സ്വാഗതം ചെയ്തു

രണ്ട് മുതൽ മൂന്ന് വരെ പാളികളുള്ള മാസ്കുകൾക്ക് എട്ട് മുതൽ പത്ത് രൂപ വരെയാണ് ഇൌടാക്കാവുന്ന പരമാവധി വില

ഈ വർഷം ജൂൺ വരെ ഇപ്പൂയ്ക്ക് ഈ വിലനിലവാരം തുടരുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

എസ് ആർ ടി

പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് യൂണിയൻ പബ്ളിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു

ഫണ്ട് രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടിയെ മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് സ്വാഗതം ചെയ്തു

വാർത്താ സമ്മേളനത്തില സംസാരിക്കൂക്യായിരുന്നു അദ്ദേഹം കൊറോണ വൈറസ് ബാധ സംബൃസ്ഡിച്ച് ചൈന വിവരങ്ങൾ കൈമാറാൻ താമസിച്ചത് ലോകവ്യാപ്ക്മായി പ്രതിസന്ധി സൃഷ്ടിച്ചെന്ന് യു

സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ഇന്നലെ വിശ്വാസ വോട്ട് തേടുന്നതിനു മുമ്പേ ശ്രീ കമൽനാഥ് രാജി സമർപ്പിക്കുകയായിരുന്നു രാജി സ്വീകരിച്ച ഗവർണർ അദ്ദേഹത്തോട കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ടു അതേസമയം സ്പീക്കർ എൻ പി പ്രജാപതി സഭാനപടികൾ അനിശ്ചിതമായി നിർത്തിവച്ചു